തൃാഗത്തിന്റെയും സഹനത്തിന്റെയും മഹത്വം വിളിച്ചോതി ഇസ്താം മതവിശ്വാസികൾ

ജമ്മു കാശ്മീരിൽ ബക്രീദ് ആഘോഷങ്ങൾക്ക് ജില്ലാ ഭരണകൂടം ക്രമീകരണങ്ങൾ ഒരുക്കി

ഇന്നലെ രാത്രി ഒൻപത് വരെയുള്ള കണക്കനുസരിച്ചാണിത് മരണസംഖ്യ ഇനിയും വർധിക്കാനാണ് സാധ്യത

കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ദുരിതാശ്വാസക്യാംപുകൾ പ്രവർത്തിക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് കൂടുതൽ ക്യാമ്പുകളുള്ളത്

കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ

വയനാട് പുത്തുമലയിൽ ഇന്നലെയും ആ ൃതദേഹം കൂടി കണ്ടെടുത്തു ഇതോടെ ഇവിടെ ദുർന്നിത്യിൽ മരിച്ചവരുടെ എണ്ണം പത്തായിട്ടുണ്ട് രണ്ടിടത്തും തെരുച്ചിൽ ഇന്നും തുടരും

പെരിങ്ങാവ് സ്വദേശി മംഗലത്ത് പ്രദീപിനെ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ക്വ്ള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലപ്പുരുപ്പിയനാട് ജില്ലകളിലെ രക്ഷാപ്രവർത്തനത്തിന് പ്യോമസേന രംഗത്തിറങ്ങിയിട്ടുണ്ട്

ഇന്നലെ വയനാടെത്തിയ രാഹുൽ ഗാന്ധി എം

അതേസമയം മഴ സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ന് മുതൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ നിരീക്ഷണം രണ്ടുദിവസം കൂടി ജാഗ്രത തുടരണമെന്നു സംസ്ഥാന ഗവൺമെന്റും അറിയിച്ചു

വെള്ളക്കെട്ടിൽ വീണാണ് ഇരുവരുടെയും മരണം

ഇടുക്കി ദേവികുളം താലൂക്കിലെ അഞ്ച് ദുരിതാശാസ ക്യാമ്പുകളിൽ രണ്ട് ക്യാമ്പുകൾ അവസാനിപ്പിച്ചു

ഷൊർണൂർ പാലക്കാട് പാതയിൽ ഇന്നലെ മുതൽ ട്രെയിനുകൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട് വെള്ളം കയറിയതിനെ തുടർന്ന് അടച്ചിട്ട നെടുമ്പാശേരി വിമാനത്താവളം തുറന്നിട്ടുണ്ട്

മണ്ണിടിച്ചിലിൽ എട്ട് പേരെ കാണാതായ കുടകിലെ തോറയിലേക്ക് ഇതുവരെ ദുരന്തനിവാരണ സേനയ്ക്ക് എത്താനായിട്ടില്ല

സൌരാഷ്ട്രയിലും മധ്യ ഗുജറാത്തിലുമാണു കനത്ത നാശനഷ്ടങ്ങൾ തുടരുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും ബിജെപി ദേശീയ് അധ്യക്ഷനുമായ അമിത് ഷാ പ്രളയമേഖലകളിൽ ഇന്നലെ വ്യോമനിരീക്ഷണം നടത്തി ഒഡീഷയിൽ വെള്ളപ്പൊക്കത്തെ തുടർന്നുള്ള നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് നെൽകാൻ ഗവൺമെന്റ് ജില്ലകളിലെ കളക്ടർമാരോട് ആവശ്യപ്പെട്ടു വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്

കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് ചെന്നൈയിൽ സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി

കേരളം പ്രളയദുരന്തം നേരിടുന്ന പശ്ചാത്തലത്തിൽ ഈദ് സംഗമങ്ങൾ അടക്കമുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കി ആണ് ഇത്തവണ ഈദുൽ അസ്ഹ ആഘോഷിക്കുന്നത് പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ നടക്കുകയാണ് ഹസ്രത്ത് ഇബ്രാഹീം നബി യുടെ ജീവിതയാത്രത്തിലെ എണ്ണമറ്റ ത്യാഗങ്ങളുടെ സ്മരണ പുതുക്കുകയാണ് ഈദുൽ അസ്ഹ ബലിപ്പെരുന്നാളിനോട അനുബന്ധിച്ച് രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ഗവർണർ പി സദാശിവം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ ബക്രീദ് ആശംസകൾ നേർന്നു

സംസ്ഥാന ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും സമാധാനപൂർണവും സൌകര്യപ്രദവുമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഗവൺമെന്റ് ഉറപ്പു വരുത്തിയിട്ടുണ്ട്

വിമ്മാന്റ് സ്ർവീസ് ഷെഡ്യൂൾ പ്രകാരം ഓപ്പറേറ്റ് ചെയ്തിരുന്നു വിമ്യനീടിക്കറ്റുകളുടെ വിൽപ്പനയും സുഗമമായി നടന്നു

പാകിസ്ഥാൻ സംത്സോധാ ട്രെയിൻ സർവ്വീസ് റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ തീരുമാനം ഇന്നലെ ന്യൂഡൽഹിയിൽ നിന്ന് സർവീസ് ആരംഭിച്ച ട്രെയിൻ അട്ടാരിയിൽ സർവീസ് അവസാനിപ്പിച്ചു

ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനി പാക്സ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായി നടത്തിയ ടെലഫോൺ ചർച്ചയിലാണ് ഇക്കാര്യം ഉന്നയിച്ചത് വിഷയം സൈനിക ഇടപെടലിലൂടെ പരിഹരിക്കേണ്ടതല്ല ഇക്കാരൃത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള സഹായ സഹകരണങ്ങളും റൂഹാനി വാദ്ഗാനം ചെയ്തു

സിഖ് മത വിഭാഗങ്ങൾക്ക് സുപ്രധാനമായ ഈ പദ്ധതിയുടെ നടത്തിപ്പിൽ നിന്ന് പാകിസ്ഥാൻ പിന്നോട്ട് പോകരുതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു പദ്ധതി കശ്മീർ വിഷയവുമായി കൂട്ടിക്കുഴയ്ക്കുന്നതിൽ അർത്ഥമില്ലെന്നും കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു

ബി എസ് ഇ

രാജ്യത്തിന് പുറത്തുള്ള സി ബി എസ് ഇ

വിക്രം സാരാഭായിയുടെ നൂറാം ജന്മദിനം ഇന്ന്

എസ് ആർ

വിക്രം സാരാഭായിയുടെ ചിത്രം ഇന്ന് ഡൂഡിൽ നൽകി ഇന്ന് ഗൂഗിൾ അദ്ദേഹത്തെ ആദരിച്ചു

ലക്ഷ്മൺ മംഗാർ സ്മൃതി സൻസ്തയുടെ നേതൃത്വത്തിൽ ഇന്നലെ സംഘടിപ്പിച്ച ഏകലവൃ ഏകൽ വിദ്യാലയം സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി കേന്ദ്ര ഗവൺമെന്റിന്റെ ചെറുകിട മധ്യവർഗ സംരംഭ പദ്ധതിലൂടെ ആദിവാസി സമൂഹത്തിന് കഴിയുന്ന എല്ലാ സഹായവും ലഭ്യമാക്കുമെന്നും കേന്ദ്ര മന്ത്രി പറഞ്ഞു

യുദ്ധാനന്തരം അഫ്ഗാനിസ്ഥാന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ അടുത്ത മാസം നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സുപ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു